ത സംസ്ഥാനത്ത് ഇന്നലെ പത്തുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

ഖത്തർ ഒമാൻ സൌദി അറേബ്യ ബഹറിൻ കുവൈറ്റ് യു

ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കായി അവിടങ്ങളിലും ഹെൽപ് ഡെസ്ക്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്

എ ഇയിൽ അസുഖബാധിതരായവരെ ആശുപത്രി കളിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളുടെ സഹായത്തോടെ ആവശ്യമായ മലയാളികൾക്ക് ആഹാരം നൽകുന്നത് തുടരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ അവശ്യഘട്ടത്തിലേക്ക് ആവശ്യമുള്ള മുറികളുടെയും കെട്ടിടങ്ങളുടെയും ലിസ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കുന്നുണ്ട്

അടിയന്തര സാഹചര്യത്തിൽ ഇവ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതിൽ വ്യക്തത വരുത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ ഇവയുടെ കണക്കെടുക്കും ടണലുകളുണ്ടാക്കി സാനിറ്റൈസ് ചെയ്യുന്ന രീതി അശാസ്ത്രീയമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അൺ എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാനേജ്മെന്റുകൾ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രിന്റിംഗ് പ്രസ്സുകൾ നിബന്ധനകൾക്ക് വിധേയമായി ആഴ്ചയിൽ ഒരു ദിവസം തുറക്കും

സംസ്ഥാനത്ത് ഇന്നലെ പത്തുപേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂരിൽ ഏഴും കാസർകോട് രണ്ടും കോഴിക്കോട് ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇതിൽ മൂന്നുപേർ വിദേശത്തുനിന്ന് വന്നവരാണെന്നും ഏഴുപേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കാസർകോട് ഒമ്പതും പാലക്കാട് നാലും തിരുവനന്തപുരത്ത് മൂന്നും ഇടുക്കിയിൽ രണ്ടും തൃശൂരിൽ ഒരാൾക്കുമാണ് രോഗം ഭേദമായത്

രുര കണ്ണൂർ ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ഏഴുപേരിൽ അഞ്ചുപേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പടർന്നത്

വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തെ രോഗം ഭേദമായതിനെത്തുടർന്ന് വെള്ളിയാഴ്ച ഡിസ്ചാർജ്ജ് ചെയ്തിരുന്നു ഡിസ്ചാർജ്ജ് ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം അയച്ച സാമ്പിളാണ് പോസിറ്റീവായത്

ഒരു കണ്ണൂർ സ്വദേശിയും ജില്ലയിൽ ചികിത്സയിലുണ്ട് രുര കൊറോണ വൈറസ് ബാധിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവസാനത്തെ രോഗിയും വീട്ടിലേക്ക് മടങ്ങി ഇതോടെ ഇടുക്കി കൊറോണ സ്ഥിരീകരിച്ച് പോസിറ്റീവായി തുടരുന്നവർ ഇല്ലാത്ത രണ്ടാമത്തെ ജില്ലയായി ഓരോ രോഗിയുടെയും റൂട്ട്മാപ്പ് ഉൾപ്പടെ തയ്യാറാക്കി ശക്തമായ നിരീക്ഷണ സംവിധാനമൊരുക്കിയതിലൂടെ കോവിഡിന്റെ ഭീതി അകറ്റാൻ കഴിഞ്ഞുവെന്ന് ജില്ലാ കലക്ടർ എച്ച്

പുതുതായി രോഗികളില്ല എന്നത് എല്ലാവർക്കും വളരെ ആശ്വാസം പകരുന്ന കാര്യമാണെന്നും കലക്ടർ പറഞ്ഞു രുമ രോഗവിമുക്തനായതിനെ തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരാളെ കൂടി ഡിസ്ചാർജ്ജ് ചെയ്തു

രുമ എറണാകുളം ജില്ലയിൽ തുടർച്ചയായി എട്ടാം ദിവസവും പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

രുമ പാലക്കാട് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ ഉണ്ടായിരുന്ന നേടി ചാലിശ്ശേരികിഴക്കഞ്ചേരിഒറ്റപ്പാലം കാരാകുറുശ്ശി സ്വദേശികളാണ് ഇന്നലെ വൈകുന്നേരം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത്

രുമ കോട്ടയം ജില്ലയിൽ ഇന്നലെ മൂന്നുപേരെ കൂടി ആശുപത്രി നിരീക്ഷണത്തിലാക്കി ഇപ്പോൾ നാലു പേരാണ് കോട്ടയം മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്

ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ സക്കീന അറിയിച്ചു രുമ ആശുപത്രികളിൽ ആവശ്യമെങ്കിൽ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും പൊലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി രാജ്യത്ത് അവശ്യ വസ്തുക്കളുടെ വിതരണം തൃപ്തികരമാണെന്നും എല്ലാ തലത്തിലും ഇത് നിരീക്ഷിക്കുന്നുണ്ടെന്നും മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ന്യൂഡൽഹിയിൽ അറിയിച്ചു

കൊറോണ കേസുകളുടെ വ്യാപനം പരിശോധിക്കുമ്പോൾ ലോക്ഡൌണും കണ്ടെത്തിയെന്നും ഈ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തെ കൊറോണ കേസുകളുടെ എണ്ണം രണ്ടുലക്ഷമെങ്കിലും ആകുമായിരുന്നെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു

മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ കേസുകളും മരണവും റിപ്പോർട്ട് ചെയ്തത്

എം മണിയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി കാനനപാതകൾ ഉൾപ്പെടെ വഴികളിലൂടെ യാത്ര വിലക്കാൻ കർശന നടപടി സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു എന്നാൽ പ്രധാന റോഡിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കില്ല

രുര കോവിഡിനെ അതിജീവിക്കാൻ കേന്ദ്ര സഹായം വർധിപ്പിക്കണമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു പ്രവാസികളുടെ ക്ഷേമത്തിന് സംസ്ഥാന ഗവണ്മെന്റ് ആവുന്നതെല്ലാം ചെയ്യും

കുരിശുമരണം വരിച്ച യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുന്നത്

ഉയിർപ്പു തിരുന്നാൾ ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും തിരുകർമ്മങ്ങൾക്ക് ഇന്നലെ രാത്രി തുടക്കമായി ലോക്ക് ഡൌണായതിനാൽ ദേവാലയങ്ങളിലെ ചടങ്ങുകളിൽ വൈദികർ മാത്രമാണ് പങ്കെടുക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ലൈവ് സ്ട്രീമിങ് നടത്തുന്നതിന് സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്